നിർഭയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ട് പ്രതികൾ സമർപ്പിച്ച തിരുത്തൽ ഹർജികൾ സുപ്രീം കോടതി തളളി

റെയ്സിന ഡയലോഗിന് ഇന്ന് തുടക്കം ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ന്രേന്ദ്രമോദി പങ്കെടുക്കും

സ്വർണ്ണാഭരണങ്ങൾക്ക് ഹാൾമാർക്കിങ്ങ് നിർബന്ധമാക്കുമെന്ന് കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാൻ

രമണ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ചാണ് ഹർജികൾ തള്ളിയത്

വോയിസ് പ്രതികൾ സമർപ്പിച്ച തിരുത്തൽ ഹർജിയിൽ വസ്തുതാപരമായി യാതൊന്നുമില്ലെന്ന് ഏകാഭിപ്രായത്തോടെയാണ് അഞ്ചംഗ ബെഞ്ച് ഹർജികൾ തള്ളിയത് വധശിക്ഷ സ്റ്റേ ചെയ്യണമെന്ന അപേക്ഷയും കേടതി തള്ളി

മുകേഷ് സിങ്ങിനും വിനയ് ശർമ്മയ്ക്കും പുറമേ അക്ഷയ് കുമാർ പവൻ ഗുപ്ത എന്നീ ര് പ്രതികൾ കൂടിയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് കേസിലെ അഞ്ചാം പ്രതി രാം സിങ്ങ് ജയിലിൽ ആത്മഹത്യ് ചെയ്തിരുന്നു പ്രായപൂർത്തിയാകാത്ത മറ്റൊരു പ്രതി ശിക്ഷ പൂർത്തിയായ ശേഷം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങി ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ലോകം നേരിടുന്ന സുപ്രധാന വെല്ലുവിളികളെക്കുറിച്ച് ഏഴ് മുൻ രാഷ്ട്രത്തലവന്മാർ ആശയങ്ങൾ പങ്കുവയ്ക്കും വിദേശകാര്യ മന്ത്രാലയവും ഒബ്സർവർ റിസർച്ച് ഫൌണ്ടേഷനും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

യു അക്രമസംഭവങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന് വാട്സ്ആപ്പിനും ഗൂഗിളിനും ഡൽഹി ്ഹൈക്കോടതി നിർദ്ദേശം നൽകി കൂടുതൽ വിവരങ്ങളുമായി ഉദയ കുമാർ

യു അക്രമ സംഭവങ്ങളുടെ ആസൂത്രണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ര് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളില്ലെ അംഗങ്ങളുടെ മൊബൈൽ ഫോണുകൾ എത്രയും പെട്ടെന്ന് പ്പിടിച്ചെടുക്കാൻ പൊലീസിന് കോടതി നിർദ്ദേശം നൽകി അക്രമ സംഭവങ്ങളുടെ ഫൂട്ടേജുകൾ എത്രയും വേഗം കൈമാറണമെന്ന് ജ്

ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഡൽഫ്യൂ പൊലീസ് കമ്മീഷണർക്കും ഡൽഹി ഗവൺമെന്റിനും നൽക്ണ്മെന്നാവശ്യപ്പെട്ട് മൂന്ന് ജെ

യു ക്യാമ്പസിനുള്ളിൽ കടന്ന് അക്രമം അഴിച്ചു വിട്ടത് സംഭവത്തിൽ വസന്ത് കുഞ്ച് നോർത്ത് പൊലീസ് സ്റ്റേഷനിൽ മൂന്ന് എഫ്

ആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

സ്തനാർബുദാ് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന രോഗമാണെന്നും അതുമൂലം ്മർണം സംഭവിക്കില്ലെന്നും ശ്രീമതി പ്രീതി സുതൻ പറഞ്ഞു

ദത്തെടുക്കുന്ന മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തങ്ങൾ കൈമാറുന്നതിനൊപ്പം ഒരു കുട്ടിയുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടേതുണ്ടെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര ദത്തെടുക്കൽ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദേശീയ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി രാജ്യത്തെ അനാഥരായ കുട്ടികളുടെ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദത്തെടുക്കലുകളുടെ എണ്ണം വളരെ കുറവാണെന്നും ധാരാളം ദമ്പതിമാർ ഇപ്പോഴും ദത്തെടുക്കാൻ കാത്തിരിക്കുകയാണെന്നും ശ്രീമതി ഇറാനി പറഞ്ഞു

ഇത് സംബന്ധിച്ച വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കുമെന്നും മന്ത്രി അറിയിച്ചു

ഇതിലൂടെ ആഭരണ നിർമ്മാണവുമായി ബ്രസ്പ്പെട്ട ക്രമക്കേടുകൾ പരിഹരിക്കാനും ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കാനും സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി

വടക്കൻ കശ്മീരിലെ കുപ്വാരയിലും മധ്യ കൾമീരിലെ ഗാന്ധർബൽ മേഖലയിലുമാണ് ഹിമപാതമുണ്ടായത്

നവ്ഗാം മേഖലയിൽ ഒരു ബി

ജവാനും ഹിമപാതത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു

ഭക്ഷ്യതര വസ്തുക്കളുടെ വിലയിൽ നാലിരട്ടി വർദ്ധനയാണ് ഉണ്ടായിരിക്കുന്നത്

ടോസ് നേടിയ ഓസ്ട്രേലിയ ഇന്ത്യയെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു

ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി മിച്ചൽ സ്റ്റാർക്ക് മൂന്ന് വിക്കറ്റും കുമിൻസ് റിച്ചാർസൺ എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും വീഴ്ത്തി

മൂന്ന് മത്സരങ്ങളുള്ള് പരമ്പരയിലെ ്രണ്ടാം ഏകദിനം വെള്ളിയാഴ്ച രാജ്കോട്ടിൽ നടക്കും

ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നാലാം വിഭാഗത്തിൽ പെടുന്ന മേഖലയാണ് ലഡാക്ക് ലഡാക്കിനും ജമ്മുകശ്മീരിനും പുറമെ അസം ബിഹാർ മണിപൂർ മേഘാലയ ത്രിപുര ഹിമാചൽ ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും ദേശീയ ഭൂകമ്പ സാധൃത ലഘൂകരണ പദ്ധതി നടപ്പാക്കുന്നുണ്ട്

സമുദ്രനിരപ്പ് ഉയരൽ സമുദ്ര ജീവികളുടെ നാശം തീവ്രമായ കാലാവസ്ഥ എന്നിവയിലൂടെ ആഗോളതാപനത്തിന്റെ തിക്തഫലങ്ങൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞുവെന്നും പഠനം കണ്ടെത്തി

സംഭവത്തിന് ഉത്തരവാദികളായ എല്ലാവർക്കും ശിക്ഷ ഉറപ്പു വരുത്തുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഹസ്സൻ റൊഹാനി ഇന്ന് ട്ടെലിവിഷനിലൂടെ നടത്തിയ പ്രസംഗത്തിൽ വൃക്തമാക്കി